സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ തീരുമാനം

വാക്സിൻ നൽകിയതാട്ടി ്കേന്ദ്ര സർക്കാർ

കോങ്ങാട് എം

ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും

സംസ്ഥാന സർക്കാരുകൾ വിവിധ സംസ്ഥാനങ്ങളിലെ മാർക്കറ്റിംഗ് ബോർഡുകൾ കാർഷിക ഉത്പാദക സംഘടനകൾ സഹകരണ സംഘങ്ങൾ എന്നിവയുമായും കൂടുതൽ ചർച്ചകൾ നടക്കും കർഷകരുടെ താത്പരൃങ്ങൾക്ക് അനുകൂലമായായി മാത്രമേ അന്തിമ തീരുമാനം എടുക്കുവെന്ന് വിദഗ്ധ സമിതി അംഗങ്ങൾ ഡൽഹിയിൽ അറിയിച്ചു അതേസമയം ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷക സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പത്താംവട്ട ചർച്ച നാളത്തേയ്ക്ക് മാറ്റി

ദേശീയ അധ്യക്ഷൻ ജെ

രാജൃത്തെ കാർഷിക മാർക്കറ്റുകൾ മുഴുവൻ ആട്ടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ചതായി രാഹുൽ ഗാന്ധി കർഷ്ടക്ര തെറ്റിദ്ധരിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു

മിക്ക സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ വാക്സിനേഷന് അനുകൂലമായാണ് പ്രതികരിക്കുന്നത്

വിശദാംശങ്ങളുമായി അഞ്ജു

കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നൽകുന്ന രണ്ട് വാക്സിനുകളും സുരക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ കോവിഡ് വാക്സിനെ സംബന്ധിച്ച ആശങ്കകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും ശ്രീ ഹർഷ് വർധൻ വ്യക്തമാക്കി

രണ്ടാം ഘട്ട സമ്മേള്ന്റ് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെയാണ്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇരും സഭകളെയും സംയുക്തമായി അഭിസംബോധന ചെയ്യുന്ന്ത്യോടെയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്

കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബൂജ്റ്റ് അവതരിപ്പിക്കും

അദ്ദേഹത്തിന്റെ ഭൌതികശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പാലക്കാട് ചന്ദ്രനഗർ വൈദ്യുത ശ്മശാനത്തിൽ സംസ്കരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ പാലക്കാട്ട് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു

വിജയദാസിനോടുള്ള ആദരസൂചകമായി നിയമസഭ ഇന്നത്തേയ്ക്ക് പിരിഞ്ഞു

വോയ്സ് ചരിത്രജയം പേരിലാക്കിയാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ തുടർച്ചയായ രണ്ടാം ടെസ്റ്റ് പരമ്പര നേടുന്നത്

ബ്രിസ്ബേനിലെ അവസാന ടെസ്റ്റിലെ മൂന്ന് വിക്കറ്റ് ജയവും ഇന്ത്യ സ്വന്തം പേരിലാക്കി അവസാന ദിനം ഗിൽ ് പൂജാര പന്ത് എന്നിവരുടെ ബാറ്റിംഗാണ് ഇന്ത്യക്ക് ജയമൊരുക്കിയത്

വിരാട് കോലിയടക്കമുള്ളൂ ്വമ്പൻ താരങ്ങളില്ലാതിരുന്നിട്ടും പരിക്കും ഓസീസ് മികവ്വിക്ക്യും പൊരുതിത്തോൽപിച്ച് ചരിത്രം കുറിക്കുകയായിരുന്നു ട്ടൂീഴ് ഇന്ത്യ

ഭാവി പരമ്പരകളിലും വലിയ വിജയങ്ങൾ നേടാൻ ഇന്ത്യയ്ക്ക് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു

ഇന്ത്യാ ആഫ്രിക്ക ഫോറം ഉച്ച്കോടി കാലതാമസമില്ലാതെ നടത്താൻ ഉദ്ദേശിക്കുന്നതായും ശ്രീ ജയ്ശങ്കർ വ്യക്തമാക്കി

ഇക്കാര്യം ആവശ്യപ്പെട്ട് നിരവധി കേന്ദ്രങ്ങൾ ഉപരിതല ഗതാഗത ദേശീയപാത മന്ത്രാലയത്തെ സ്യമീപിച്ചതിനെ തുടർന്നാണ് തീരുമാനം

ഇരു ഭാഗത്തും റാഫേൽ വിമാനം ഉൾപ്പെടുന്നു എന്ന സവിശേഷതയും പരിശീലനത്തിനുണ്ട് പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയും ഫ്രഞ്ച് വ്യോമ ബഹിരാകാശ സേനയും ഗരുഡ എന്ന പേരിൽ ആറ് പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ട്